ചിത്തിര ആട്ടത്തിരുനാൾ വിശ്ഷ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നടയടച്ചു

ടി ജലീലിനെ മാറ്റിയില്ലെങ്കിൽ ഗവർണറെ സമീപിക്കു മെന്ന് മുസ്ലിം ലീഗ്

ള അ ശ്ര ശബരിമലയിൽ സംഘ് പരിവാർ ആചാരം ലംഘിച്ച് കടന്നു കയറ്റം നടത്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി അമ്പ ലത്തിൽ പോകാത്ത താനടക്കമുള്ളവർ ശബരിമലയിൽ പോയ പ്പോൾ ആചാരത്തെ ബഹുമാനിച്ച് മറ്റൊരു വഴിയിലൂടെയാണ് പ്രവേ ശിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു ശബരിമല വിഷയത്തിൽ എൽ

എഫ് സംഘടിപ്പിച്ച റാലി കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു മുഖ്യമന്ത്രി ഇരുമുടിക്കെട്ട് നിർബന്ധമാണെന്നിരിക്കെ അതി ല്ലാതെയാണ് സംഘ്പരിവാറുകാർ പതിനെട്ടാം പടി ചവിട്ടിയതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി ചെറുമകന് ചോറൂണിനെത്തിയ വിശ്വാ സിയായ സ്ത്രീയെ എന്തിന് ആക്രമിച്ചു എന്ന് അദ്ദേഹം ചോദിച്ചു ശബരിമല കലാപഭൂമിയാക്കാനാണ് ഇവർ ഉദ്ദേശിച്ചതെന്നും മുഖ്യ മന്ത്രി പറഞ്ഞു വലിയ സംഘർഷമായിരുന്നു നടതുറക്കുന്ന ദിവസം സംഘ് പരിവാർ ലക്ഷ്യമിട്ടതെന്നും എന്നാൽ പൊലീസ് ഇടപെ ട്ടാണ് രംഗം ശാന്തമാക്കിയതെന്നും പിണറായി പറഞ്ഞു ശബരി മല അടച്ചിടുകയാണ് ഇവരുടെ ആവശ്യമെന്നും മുഖ്യമന്ത്രി കുറ്റ പ്പെടുത്തി എല്ലാ സുരക്ഷാ സംവിധാനവും ഒരുക്കിയിട്ടും പോലീസിനെ നോക്കുകുത്തിയാക്കി ആർ

എസ് നിയന്ത്രണം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് ശബരിമലയിൽ ഇന്നലെ കണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു് സംഘ് പരിവാറും സിപി ഐഎമ്മും തമ്മിലെ ഒത്തുകളി ഇതോടെ കൂടുതൽ വ്യക്തമാവുക യാണെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു അൻപതു വയസു കഴിഞ്ഞ ഭക്തകൾക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ ഇടപെ ടാതെ പോലീസ് കൈയും കെട്ടി മാറി നിൽക്കുകയായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു

പോലീ സിനെ സംഘ്പരിവാറിന്റെ റിമോട്ട് കൺട്രോളറാക്കരുതെന്നും പ്രതി പക്ഷ നേതാവ് ആവശ്യപ്പെട്ടു

ഐഎമ്മും ബി

പിയും നടത്തുന്ന ഒത്തുകളിയുടെ പുതിയ തെളിവാണ് ആർ

എ മജീദ് ആരോപിച്ചു നട തുറക്കുമ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് പൊലീസ് സന്നാഹം ശക്തിപ്പെടുത്തുന്ന ഗവൺമെന്റ് തന്നെയാണ് ബി

പി നേതാക്കൾക്ക് തോന്നും പോലെ കാര്യങ്ങൾ ചെയ്യാൻ സൌകര്യം ഏർപ്പെടുത്തി നല്കുന്നതെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു

പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻ പിള്ളയുടെ സംഘർഷം ഏറ്റെടുക്കുന്ന വെളിപ്പെടുത്തലിന് ശൃഷവും വാചക കസർത്തിന് അപ്പുറം പോകാൻ ഗവൺമെന്റിന് ആകുന്നില്ലെന്നും മജീദ് കുറ്റപ്പെടുത്തി ശബരിമല പോലീസിന്റെ പൂർണ നിയന്ത്രണത്തിലാണെന്ന് മുഖ്യ മന്ത്രി പറയുന്നുണ്ടെങ്കിലും അവിടെ പൂർണമായും ആർ

എ സിന്റെ നിയന്ത്രണത്തിലാണെന്ന് യു

എഫ് കൺവീനർ ബെന്നി ബെഹനാൻ കുറ്റപ്പെടുത്തി പോലീസിന്റെ മൈക്ക് പിടിച്ചു വാങ്ങി പ്രസംഗിച്ചും ഇരുമുടിക്കെട്ടില്ലാതെ പതിനെട്ടാം പടി ചവിട്ടിയും പോലീസിനും ഭക്തർക്കും ആർ

ശബരിമ ലയിൽ വൻ സുരക്ഷ ഒരുക്കുമെന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ പോലീസ് സേനയെ നോക്കുകുത്തിയാക്കി നിയന്ത്രണം ആർഎസ് എസ് പിടിച്ചെടുക്കുന്നത് സുരക്ഷാ വീഴ്ചയ്ക്ക് ഇടയാക്കിയതായും അദ്ദേഹം പറഞ്ഞു

തന്ത്രിക്കും രാജകുടുംബാംഗങ്ങൾക്കും മാത്രമാണ് ഇരുമുടിക്കെട്ടില്ലാതെ പതി നെട്ടാം പടി കയറാനാവൂയെന്നും അദ്ദേഹം ശബരിമലയിൽ അറി യിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം കെ പി ശങ്കരദാസും ആർ

എസ് നേതാവ് വത്സൻ തില്ലങ്കേരിയും ഇരു മുടിക്കെട്ടില്ലാതെ പതിനെട്ടാം പടി കയറിയെന്ന് ആരോപണം ഉയർന്നിരുന്നു പതിനെട്ടാം പടിയിൽ ഇരുമുടിക്കെട്ടില്ലാതെ കയറി ആചാര ലംഘനം നടത്തിയ ദേവസ്വം ബോർഡ് അംഗം കെ പി ശങ്കർദാ സിനെ ബോർഡിൽ നിന്നും ഒഴിവാക്കിയില്ലെങ്കിൽ തീർത്ഥാടനം സുഗമമാവില്ലെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ

എസ് നേതാവ് വത്സൽ തില്ലങ്കേരി ഇരുമുടിക്കെട്ടുമായാണ് പതിനെട്ടാം പടിയിൽ നിന്നതെന്നും സന്നിധാനത്ത് മാധ്യമ പ്രവർത്തകരെ അക്രമിച്ചതിന് പിന്നിൽ സംഘ്പരിവാർ പ്രവർത്തകരാണെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാവുമെന്നും ശശികല പറഞ്ഞു

മേഴ്സി ക്കുട്ടിയമ്മ കൊല്ലത്ത്പറഞ്ഞു

പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീധ രൻപിള്ളയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്ത്രി നൽകിയ വിശദീകരണം യോഗം ചർച്ച ചെയ്യും മണ്ഡല മകര വിളക്ക് കാലത്തെ മുന്നൊരുക്കങ്ങളും ചർച്ചാ വിഷയമാവും ശബ രിമല സ്ത്രി പ്രവേശന വിഷയത്തിൽ സുപ്രിംകോടതിയിൽ പുനപരിശോധനാ ഹർജി പരിഗണിക്കുമ്പോൾ നൽകേണ്ട മറുപ ടിയും പരിഗണനക്ക് വരും മണ്ഡല മകരവിളക്ക് കാലത്ത് ശബ്രിമല തീർത്ഥാടകരെത്തുന്ന കുറ്റിപ്പുറം മിനി പമ്പയിലും ചമ്രവട്ടത്തും ആവശ്യമായ സൌകര്യ ങ്ങൾ ഏർപ്പെടുത്താൻ അവലോകന യോഗം തീരുമാനിച്ചു

നിയമവും ചട്ടവും ലംഘിച്ച് ബന്ധുവിനെ നിയമിച്ച് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ കെ ടി ജലീലിനെ മന്ത്രി സ്ഥാനത്തും നിന്ന് മാറ്റിയില്ലെങ്കിൽ ഗവർണ്ണറെ സമീപിക്കുമെന്ന് മുസ്ലിംലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

നിശ്ചിത യോഗ്യതയുടെ അടിസ്ഥാനത്തിലെ വിജ്ഞാപ നത്തെ തുടർന്ന് ഇന്റർവ്യൂ നടത്തിയ ശേഷം യോഗ്യത തിരുത്തി ഡെപ്യൂട്ടേഷനിൽ സ്വകാര്യ ബാങ്ക് ജീവനക്കാരനായ ബന്ധുവിനെ നിയമിച്ചത് വ്യക്തമായ അഴിമതിയാണെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു

ടി ജലീലിന്റെ നടപടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് വ്യക്തമാ ക്കണമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം പി ആവശ്യപ്പെട്ടു ബന്ധു നിയമന കാര്യത്തിൽ അടിസ്ഥാന രഹിതമായ കാര്യങ്ങളാണ് ജലീൽ പറയുന്നതെന്നും അദ്ദേഹം മഞ്ചേരിയിൽ പറഞ്ഞു

യൂത്ത് ലീഗുകാർക്ക് പരാതി യുമായി കോടതിയെ സമീപിക്കാമെന്ന് അദ്ദേഹം കോഴിക്കോട്ട് അറി യിച്ചു തന്റെ കരങ്ങൾ ശുദ്ധമാണെന്നും സിപിഐഎമ്മിന് തന്നെ അറിയാമെന്നും ജലീൽ പറഞ്ഞു

ക്യാപ്റ്റൻ രോഹിത് ശർമ നേടിയ സെഞ്ചുറിയായിരുന്നു ഇന്ത്യയുടെ കരുത്ത്

എൽ ഫുട്ബോളിൽ നിലവിൽ ജേതാക്കളായ ചെന്നൈ യിൻ എഫ് സിക്ക് ഈ സീസണിൽ ആദ്യ ജയം പൂനെ സിറ്റി എഫ്

ഉച്ചയോടെ വാക്കടവ് കക്കാട് കടപ്പുറത്ത് നിന്നും സർവാഭരണ വിഭൂഷിതയായ ദേവിയും മകൻ ജാതവനും ഒന്നിച്ചാണ് തിരിച്ചെഴുന്നള്ളത്ത് ദീപാവലി ദിവ സമായ ഇന്നലെ രാവിലെ മുതൽ നാടിന്റെ നാനാദിക്കുകളിൽ നിന്നും പേടിയാട്ട് ക്ഷേത്രത്തിലേക്ക് ഭക്തരുടെ ഒഴുക്കായിരുന്നു

ഹൃദയസംബന്ധമായ അസുഖത്തെത്തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ വൈകീട്ടായിരുന്നു അദ്ദേഹ ത്തിന്റെ അന്ത്യം

സംസ്ഥാന പിന്നാക്ക സമുദായ കമ്മിഷൻ അംഗമായും പ്രവർത്തിച്ചു

സംസ്കാരം ഇന്ന് ഉച്ച കഴിഞ്ഞ് രണ്ടിന് പാലക്കാട് കോങ്ങാട് ബംഗ്ലാംകുന്നിലെ വസതിയിൽ നടക്കും പക്ഷാഘാതം വന്നവർക്ക് അടിയന്തര വിദഗ്ദ ചികിത്സ നൽകു ന്നതിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിർമിച്ച സ്ട്രോക്ക് യൂണിറ്റ് മന്ത്രിമാരായ കെ കെ ശൈലജയും ടി പി രാമകൃഷ്ണനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു പക്ഷാഘാതം മരണകാരണങ്ങളിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രോഗമാണെന്ന് മന്ത്രി ശൈലജ പറഞ്ഞു

സി യും സർട്ടിഫിക്കറ്റുക ളും ഓൺലൈനിൽ ലഭ്യമാക്കുന്ന സംവിധാനം ഏർപ്പെടുത്തണ മെന്ന് നിർദ്ദേശം നൽകിയതായി മന്ത്രി ഡോ

വിവിധ സർവകലാ ശാലകൾക്കും കോളേജുകൾക്കുമിടയിൽ ക്രഡിറ്റ് എക്സ്ചേഞ്ച് സ മ്പ്രദായം അടുത്ത അദ്ധ്യയനവർഷം തന്നെ ആരംഭിക്കുന്നകാര്യം ഗവൺമെന്റ് പരിഗണിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു അൺ എയ്ഡഡ് മേഖലയിലെ ചൂഷണം അവസാനിപ്പിച്ച് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ സമഗ്ര നിയമം കൊണ്ടുവരുമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു ഈ മേഖലയിൽ ക്ഷേമനിധി നടപ്പാക്കു മെന്നും മതിയായ വേതനം ലഭ്യമാക്കാൻ ഇടപെടുമെന്നും മന്ത്രി പറഞ്ഞു വടകരയിൽ അൺഎയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് ആന്റ് സ്റ്റാഫ് യൂനിയൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു മന്ത്രി കോഴിക്കോട് ജില്ലയിൽ പുതുതായി നിർമ്മിച്ചറീജിയണൽ വാക് സിൻ സ്റ്റോർ ആന്റ് ട്രെയിനിങ് സെന്റർ ഓഡിറ്റോറിയം മന്ത്രി കെ

ശൈലജ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധതികൾ ശരിയായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ മികച്ച പരിശീലനമാണ് വേണ്ടതെന്നും മന്ത്രി പറഞ്ഞു ലക്ഷ്യ അവാർഡ് നേടീയ കോട്ടപ്പറമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ടീമിനെ ചടങ്ങിൽ മന്ത്രി അനുമോദിച്ചു വയനാട്കണ്ണൂർ കാസർഗോഡ് മലപ്പുറം ജില്ലകളിലെ ഗവൺമെന്റ് ആശുപത്രികളിലേക്കുള്ള വാക്സിൻ വിതരണം ഈ സെന്ററിൽ നിന്നും നടക്കും

പാലക്കാട് കണക്കൻതുരുത്തി ഗവ യു പി സ്കൂളിൽ ഒരു കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഹൈടെക് സ്കൂൾ കെട്ടിട ത്തിന്റെ ശിലാസ്ഥാപനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസിനെ നവോത്ഥാനം പഠിപ്പിക്കേണ്ടെന്ന് കോൺഗ്രസ് പ്രവർത്തക് സമിതി അംഗം പിസി ചാക്കോ പറഞ്ഞു കേരളചരിത്രത്തിലെ എല്ലാ നവോത്ഥാന പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു കണ്ണൂർ വിമാനത്താവളത്തിൽ അംഗപരിമിതർക്ക് ജോലി നൽക ണമെന്ന് ഡിഫറൻലി ഏബിൾഡ് പീപ്പിൾ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു ഭിന്നശേഷിക്കാരെ പഠിപ്പിക്കുന്ന സ്കൂളുകളിലെ താൽകാലിക അധ്യാപകരെ സ്ഥിരപ്പെടുത്തണ മെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു